സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ കൌമാര കലോത്സവം ഉദ്ഘാടനം ചെയ്തു

മഹാത്മാഗാന്ധിയുടെ തത്വ ചിന്തയാണ് എപ്പോഴും പ്രസ ക്തമെന്നും അത് മാർഗ്ഗദർശനമാണെന്നും അദ്ദേഹം വിവരിച്ചു ലോക്സഭയിൽ പ്രജ്ഞാസിംഗ് ഠാക്കൂറിന്റെ ഇന്നലെ നടത്തിയ പരാമർശത്തിനെതിരെ പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിച്ചതി നോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പരാമർശത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് ഡി എം കെ ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ ലോക്സഭയിൽ നിന്നിറങ്ങിപ്പോയി രാവിലെ സഭ സമ്മേളിച്ച് ചര മോപചാരം അർപ്പിച്ച ഉടൻ സഭയിലെ കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരിയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തി യത് ഗാന്ധിജിയുടെ പേര് ഭരണപ്ക്ഷം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു ബി ജെ പി അംഗം പ്രജ്ഞാസിംഗ് ഠാക്കൂർ ലോക്സഭയിൽ ഗോഡ്സെയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തെ പാർട്ടി അപലപിച്ചു ഇത്തരം പ്രസ്താവനകളെ പാർട്ടി ഒരിക്കലും പിന്തു ണക്കില്ലെന്ന് ബി ജെ പി വർക്കിംഗ് പ്രസിഡണ്ട് ജെ പി നദ്ദ ന്യൂഡൽഹിയിൽ പറഞ്ഞു രാജ്യരക്ഷാ സമിതിയിൽ നിന്ന് പ്രജ്ഞാസിംഗ് ഠാക്കൂറിനെ നീക്കാനും അദ്ദേഹം ശുപാർശ നൽകി ഈ സമ്മേളന കാലത്ത് ബി ജെ പി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അവർ പങ്കെടുക്കില്ലെന്നും ജെ പി നദ്ദ വൃക്തമാ ക്കി മഹാത്മാ ഗാന്ധിയുടെ ഘാതകൻ നാഥുറാം ഗോഡ്സെ യെ ദേശസ്നേഹിയെന്ന് പ്രജ്ഞാസിംഗ് ഠാക്കൂർ ലോക്സഭയിൽ വിശേഷിപ്പിച്ച ദിവസം പാർലമെന്റിന്റെ ചരിത്രത്തിലെ കറുത്ത ദിനമാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി പറഞ്ഞു പ്രജ്ഞാ സിംഗ് ഠാക്കൂർ ഭീകരവാദിയാണെന്നും അദ്ദേഹം കുറ്റ പ്പെടുത്തി

രാവിലെ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പ്രൌഢഗംഭീരമായ ചട ങ്ങിൽ ഭദ്രദീപം കൊളുത്തിയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കൌമാര കലോത്സവം ഉദ്ഘാടനം ചെയ്തത് സമാനതകളില്ലാത്ത സർഗ്ഗഭാവനകളുടെ സംഗമമാണ് സ്കൂൾ കലോത്സവമെന്ന് സ്പീക്കർ പറഞ്ഞു

മന്ത്രിമാരായ പ്രൊഫ സി രവീന്ദ്ര നാഥ് രാമചന്ദ്രൻ കടന്നപ്പള്ളി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി തുടങ്ങി വിവിധിജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അടക്കം വൻജനാവലി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു

എ ഗ്രേഡ് ലഭിക്കുന്നവർക്ക് ആയിരം രൂപ പ്രതിഫലം ലഭിക്കും

ദാദറിലെ ശിവജി പാർക്കിലാണ് ചടങ്ങ് താക്കറെ കുടുംബത്തിൽ നിന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകുന്ന ആദ്യത്തെ നേതാവാണ് ഉദ്ധവ് താക്കറെ ശിവസേനാ എൻ സി പി കോൺഗ്രസ് സഖ്യകക്ഷികൾ രൂപീകരിച്ച മഹാവികാസ് അഘാഡിയുടെ മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും മറ്റന്നാൾ സ്പീക്കറെ തെർഞ്ഞെടുക്കുന്നതിന് നിയമസഭ വീണ്ടും ചേരും മഹാരാഷ്ട്ര ഗവർണർ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ കൂട്ടു നിൽക്കാൻ ശ്രമിച്ചെന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ന്യൂഡൽഹിയിൽ കുറ്റപ്പെടുത്തി ന്യൂഡൽഹിയിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ ത്രികക്ഷി സഖ്യം അധികാര്ത്തിൽ എത്തുന്നത് തടയാൻ ശ്രമിച്ചു ഗവർണറുടെ നട്പടി അത്ഭുതമുളവാക്കുന്നതും അപലപ നീയവുമാണെന്ന് സോണിയാഗാന്ധി പറഞ്ഞു ഉത്പാദനവും സേവനങ്ങളും ഏകോപിപ്പിച്ചാലെ ഉത്പാദ കർക്കും സഹകരണ സംഘങ്ങൾക്കും വിപണി മത്സരത്തിൽ പിടിച്ചു ്നിൽക്കാനുകൂവെന്ന് മന്ത്രി ഡോ

സഹകരണ മേഖലയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും കേരളത്തിലെ വികേന്ദ്രീകൃത സാധ്യതയും എന്ന വിഷയത്തിൽ നിയമസഭയിൽ സംഘടിപ്പിച്ച പ്രഭാഷണ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെറുകിട വൃവസായങ്ങൾക്കും ഉദ്പാദകർക്കും ആഗോള കുത്തകകളോട് മത്സരിക്കേണ്ട സാഹചര്യത്തിൽ സഹകരണ സംഘങ്ങളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് സംസ്ഥാനത്ത് വലിയ സാധ്യതയുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ടാക്സി സർവ്വീസുകളിലെ ഏകീകൃത സഹകരണ ഓൺലൈൻ ശൃംഖല ജനുവരിയോടെ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന മന്ത്രി കട കംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ഗോവ രാജ്യാന്തര ചലച്ചിത്രമേള ഇന്ന് സമാപിക്കും മികച്ച ചിത്രം സംവിധായകൻ നടൻ നടി നവാഗത സംവിധായകൻ തുടങ്ങിയ വിഭാഗങ്ങളിലായി സുവർണ്ണ രജത മയൂര പുരസ്കാ രങ്ങൾ സമാപന ചടങ്ങിൽ പ്രഖ്യാപിക്കും മാർഗെ ആന്റ് ഹെർ മദറാണ് സമാപന ചിത്രം

ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യും നാഷ ണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ കേന്ദ്ര സാഹിത്യ അക്കാദമി ഇന്ത്യൻ കൌൺസിൽ ഓഫ് ഫിലോസഫിക്കൽ റിസർച്ച് എന്നിവ പുസ്തകോത്സവത്തിന്റെ ഭാഗമാവും പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ഡിസംബർ നാലു മുതൽ എട്ടുവരെ കൊച്ചി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു പന്തീരാങ്കാവ് യു എ പി എ കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡി യിൽ കഴിയുന്ന താഹയുടെ കയ്യക്ഷരം രേഖപ്പെടുത്താനും അന്വേ ഷണത്തിനുമായി പൊലീസ് കോഴിക്കോട് ജില്ലാ ജയിലിലെത്തി സൌത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ എ ജെ ബാബുവിന്റെ നേതൃ ത്വത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ജയിലിലെത്തിയത് ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ എഫ് സി ഒഡീഷ എഫ് സിയെ നേരിടും

ഇന്നലെ ഗുവാ ഹത്തിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുംബൈ സിറ്റി മത്സരം ഇരു ടീമുകളും രണ്ട് ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞിരുന്നു കാഠ്മണ്ഡുവിൽ സാഫ് ഗെയിംസ് വോളിബ്വോളിൽ നിലവിലെ ജേതാക്കളായ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് കളിക്കാനിറങ്ങും ബംഗ്ലാദേശാണ് എതിരാളി വനിതാ വിഭാഗത്തിൽ നേപ്പാളിനെ യാണ് ഇന്ത്യ നേരിടുക

അടുത്ത ബുധനാഴ്ചയാണ് ഫൈനൽ

ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് പൊലീസ് അറിയിച്ചു അഞ്ചൽ ഈസ്റ്റ് ഹയർ സെക്കന്ററി സ്കൂളിലും കൊട്ടരക്കര വെണ്ടാർ വിദ്യാധിരാജ സ്കൂളിലുമാണ് കഴിഞ്ഞ ദിവസം സമാന സംഭവങ്ങൾ അരങ്ങേറിയത് വെണ്ടാർ സ്കൂളിൽ ബസിന് പുറമേ ഒരു കാറും പത്ത് ബൈക്കുകളും അഭ്യാസ പ്രകടനത്തിൽ അണി നിരന്നിരുന്നു

ഇതിൽ ലൈസൻസ് ഇല്ലാത്തവരുടെ രക്ഷിതാക്കൾക്കെതിരെ കേസ് എടുക്കും വിനോദയാത്രയ്ക്ക് പുറപ്പെടും മുൻപായിരുന്നു അപകടത്തി നിടയാക്കിയേക്കാവുന്ന അഭ്യാസപ്രകടനം ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിൽ യുഡിഎഫ് പകൽ ഹർത്താൽ ആരംഭിച്ചു ചാവക്കാട് നൌഷാദ് വധക്കേസിലെ മുഴു വൻ പ്രതികളെയും പിടികൂടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നട ത്തിയ പ്രകടനത്തിനു നേരെ പൊലീസ് നടപടിയിൽ പ്രതിഷേധി ച്ചാണ് ഹർത്താൽ കൊച്ചി കാൻസർ സെന്റർ നിർമ്മാണ് പ്രവൃത്തികൾ നിർത്തി വെയ്ക്കാൻ കിഫ്ബി നിർദേശിച്ചു പദ്ധതിയുടെ ഗുണനിലവാര ക്കുറവും കാലതാമസവുമാണ് കാരണം

വിദഗ്ധ പരിശോധക്കു ശേഷം മാത്രമെ പദ്ധതി പുനരാരാംഭിക്കൂ മറ്റ് നാല് പദ്ധതികൾക്കും കിഫ്ബി സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടു ണ്ട് രാജ്യത്ത് പെട്രോൾ പമ്പുകൾ തുറക്കാൻ എണ്ണ ഇതര കമ്പ നികൾക്കും അവസരം ഒരുക്കി കേന്ദ്ര ഗവൺമെന്റ് പുതിയ നയ ത്തിന്റെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കി

കഴിഞ്ഞ മാസമാണ് പെട്രോൾ പമ്പ് ലൈസൻസ് സംബന്ധിച്ച ചട്ടങ്ങളിൽ ഇളവു വരു ത്താൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചത് വടകരയിൽ കണ്ണൂർ കോഴിക്കോട് ദേശീയപാതയിൽ ഇന്ധനടാങ്കർ ലോറി മറിഞ്ഞ് പെട്രോൾ ചോർന്നതിനെ തുടർന്ന് വാഹനങ്ങൾ വഴി തിരിച്ചുവിട്ടു മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ രാവിലെ അഞ്ചേ മുക്കാലോടെയാണ് ടാങ്കർ മറിഞ്ഞത് അപകടത്തെ തുടർന്ന തടസ്സപ്പെട്ട വാഹനഗതാഗതം പൂർവ്വസ്ഥിതിയിലായി വയനാട് ചീരാൽ പണിക്കർ പടിയിൽ ജനവാസ പ്രദേശത്ത് കടുവയിറങ്ങി കൃഷിയിടത്തിൽ കടുവയുണ്ടെന്ന് പരാതിപ്പെട്ട തിനെ തുടർന്ന് പോലീസും വനംവകുപ്പും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ നടത്തുന്നു ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പ് അറിയിച്ചു കോഴിക്കോട് കൂടത്തായി കൊലപാതക പരമ്പരയിലെ പൊന്നാ മറ്റം വീട്ടിൽ അന്നമ്മ വധക്കേസ്വിൽ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ മുഖ്യപ്രതി ജോളിയെ താമരശ്ശേരി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി അടുത്ത മാസം അഞ്ചുവരെ ജൂഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാന്റ് ചെയ്തു മഞ്ചാടിയിൽ മാത്യു വധക്കേസിൽ മൂന്നാംപ്രതി പ്രജു കുമാറിനെ ഇന്ന് വൈകീട്ട് നാലു വരെ കോടതി പൊലീസ് കസ്റ്റ ഡിയിൽ വിട്ടുനൽകി കോഴിക്കോട് ഞെളിയൻപറമ്പിൽ പുതിയ പ്ലാന്റ് സ്ഥാപിക്കു ന്നതിന് മുന്നോടിയായി തിരസ്ക്കരണികൾ നീക്കുന്നതിന് കരാ റായി മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ധാരണ ഒപ്പുവെച്ച സോൺട ഇൻഫ്രാടെകിന് തന്നെയാണ് ഇതി ന്റെയും ചുമതല

യൂണിവേഴ്സിറ്റി കോളേജിൽ യൂണിറ്റ് രൂപീകരിക്കാൻ മുൻകൈ എടുത്തിനും ഹോസ്റ്റലിൽ താമസിക്കാൻ ധൈര്യം കാണിച്ചതിനുമാണ് എസ് എഫ് ഐ നേതാ വിന്റെ നേതൃത്വത്തിൽ നിധിൻ രാജിനെ മർദ്ദിച്ചതെന്ന് കെ എസ് യു ആരോപിച്ചു